ഇന്ധനവില കുറയ്ക്കാൻ എണ്ണവിപണിയിലെ ഉൽപാദക ഉപഭോക്തൃ രാജ്യങ്ങൾ തമ്മിൽ സഹകരണം വേണമെന്ന് പ്രധാൻമന്ത്രി നരേന്ദ്രമോദി

എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷികത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി

വിലയിരുത്താൻ ദേവസ്വം ബോർഡ് വിവിധ സംഘടനകളുമായി നാളെ ചർച്ച നടത്തും

വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

ന്യൂഡൽഹിയിൽ ഇന്ത്യയിലും വിദേശത്തും നിന്നുള്ള എണ്ണ വാതക മേഖലയിലെ വിദഗ്ധരുമായി സംസാരിക്കവേയാണ് ശ്രീ നരേന്ദ്രമോദി ഇത് പറഞ്ഞത്

എണ്ണ ഉത്പാദനക രാജ്യങ്ങളുടെ സഹകരണം ഉ പ്രകൃതിവാതകം ഉത്പാദിപ്പിക്കാൻ സാങ്കേതിക വിദ്യയിലൂടെ സഹായം നൽകണം

ഇന്ത്യൻ ഊർജ്ജ മേഖലയിൽ നന്നായി ബിസിനസ് നടത്താൻ കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടെ നടപടി സ്വീകരിച്ച കേന്ദ്രഗവൺമെന്റിനെ യോഗത്തിൽ ഈ മേഖലയിലെ വിദഗ്ധർ അഭിനന്ദിച്ചു പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നീതി ആയോഗ് ഉപാധ്യക്ഷൻ ഡോ രാജീവ് കുമാർ നീതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്ത് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു

ഐകൃരാഷ്ട്രസഭയും ആഗോള സ്ഥൂഹവും കൂടുതൽ ശക്തമായും നിശ്ചയദാർഢ്യത്തോടെയുട്ടു ഭീകര ഭീഷണി കൈകാര്യം ചെയ്യേ തു ് ന്യൂഡ്ൽഹിയിൽ നാഷണൽ ഡിഫൻസ് കോളേജിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി തീവ്രവാദം ഭീകരവാദം വർഗ്ഗീയവാദം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ ശക്തമായ സമീപനം സ്വീകരിക്കേ തു ് സാമൂഹ്യവിദ്യാഭ്യാസം വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ എല്ലാവിധത്തിലുള്ള അക്രമങ്ങൾക്ക് എതിരെ സമൂഹ മനസാക്ഷി ഉണർന്ന് വരുക എന്നിവ സുരക്ഷിതമായ സമൂഹം പ്രദാനം ചെയ്യുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഡോ

മികച്ച അധ്യാപകനും പ്രചോദകനും ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോ

ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിലാണ് അദ്ദേഹം ഇന്നും ജീവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനകീയനായ രാഷ്ട്രപതിയും ദീർഘവീക്ഷണമുള്ള ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോ

ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് ശക്തിപകരാൻ കലാം നിൽകിയ സംഭാവനകളെ ശ്രീ

വാർത്ത്മാപ്പിത്രണ പ്രക്ഷേപണ മന്ത്രി കേണൽ രാജ്യവർദ്ധൻ റ്റ്ഥോഡും ഡോ

ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള ആപ്പാണ് ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ സാധാരണ പൌരന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ അയച്ച് നൽകാനാകും പരാതികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി പരിഹരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് മാതൃക പെരുമാറ്റചട്ടം നിലവിലുള്ളപ്പോൾ മാത്രമേ പ്രവർത്തിക്കൂ സ്വതന്ത്രവും സുതാര്യവും ആപ്പ് നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്താൻ ആപ്പ് സഹായകമാകുമെന്ന് ഛത്തീസ്ഗഡിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശ്രീ സുബ്രത് സാഹു പറഞ്ഞു ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലാണ് അടുത്ത മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് ഒരാഴ്ചത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും ശ്രീ മനോഹർ പരീക്കറിന്റെ ഓഫീസ് അറിയിച്ചു

സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മയും ഭവന നഗരവികസന മന്ത്രി ഹർദീപ്സിംഗ് പുരിയും ചേർന്നാണ് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രിമാരുടെ ജീവിതവും ലേഖനങ്ങളും രാഷ്ട്രനിർമ്മാണത്തിന് അവർ നൽകിയ സംഭാവനകളുമൊക്കെ പ്രദർശന ശാലയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തും

നാളെ ബോർഡ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ

തന്ത്രി സമാജം പന്തളം കൊട്ടാരം പ്രതിനിധികൾ അയ്യപ്പസേവാസംഘം അയ്യപ്പസേവാസമാജം ശബരിമല തന്ത്രിമാർ താഴമൺ കുടുംബം യോഗക്ഷേമസഭ എന്നിവരുമായാണ് ദേവസ്വം ബോർഡ് ചർച്ച നടത്തുന്നത്

ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ പുതിയ മേൽശാന്തിമാരെ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പു വ്യാഴാഴ്ച രാവിലെ സന്നിധാനത്തു നടക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു നടന്ന കൂടി കാഴ്ചയിലൂടെ മേൽശാന്തി സ്ഥാനത്തേക്ക് യോഗൃത നേടിയവരുടെ പട്ടിക ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടു ് ഈ പട്ടികയിൽ നിന്നുള്ള പേരുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിമാരെ നിശ്ചയിക്കുന്നത്

ന്യൂഡൽഹിയിൽ ബി ബി എൻ എലിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ ഗവർണൻസ് അദ്ദേഹം ഇ ഹെൽത്ത് ഇ ബാങ്കിംഗ് മുതലായ സേവനങ്ങൾ എല്ലാ പൌരന്മാർക്കും വിവേചനമില്ലാതെ ലഭൃമാക്കുക എന്നതാണ് ഈ പ്രധാന പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

അഫ്ഗാനിസ്ഥാനിൽ ഏകീകൃതവും സുരക്ഷിതവും സാമ്പത്തികവുമായ സാഹചര്യം ഒരുക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞിബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു അഫ്ഗാൻ നയതന്ത്ര പ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ നല്ല അയൽക്കാരായ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തന്ത്രപരമായ കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു ്

ഗവൺമെന്റ് ഇന്ന് പുറത്ത് വിട്ട രേഖകൾ പ്രകാരം ഭക്ഷ്യ ഉത്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടു ്

കുഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ച പദ്ധതി ഒരു വർഷ്ടത്തീനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി ശ്രീ ഹർദീപ്പ് സീംഗ് ്പുരി പറഞ്ഞു

പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയോടും വനിതാ ഹോക്കി ഫൈനലിൽ ഇന്ത്യ അർജന്റീനയോടുമാണ് പരാജയപ്പെട്ടത്

പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിലാണ് മൂന്ന് മാസം നീളുന്ന പുഷ്പമേള തുടങ്ങിയത്

രാജേന്ദ്രൻ എം

തൊഴിലുടമകളുടെ പ്രശ്ന പരിഹാരത്തിനൊപ്പം തൊഴിലാളികൾക്ക് മാനൃമായ തൊഴിൽ സാഹചര്യം ഉറുപ്പുപ്പുത്തുന്നതിനുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു

ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്രകൃഷി മന്ത്രി രാധാമോഹൻ സിംഗ് സംസാരിച്ചു